ത കോവിഡ് വ്യാപനം വിലയിരുത്താൻ ഉന്നതതല കേന്ദ്ര സംഘം നാളെ സംസ്ഥാനത്തെത്തും

വാർത്തകൾ വിശദമായി ഊർജ്ജ കേരള മിഷന്റെ ഭാഗമായ ഫിലമെന്റ് രഹിത കേരളം പദ്ധതിക്ക് ഇന്ന് തുടക്കം

മന്ത്രി എം എം മണി അധ്യക്ഷനാകും

പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കൾക്കാണ് ഇപ്പോൾ വിതരണം തുടങ്ങുന്നത്

സംസ്ഥാനങ്ങളിലേയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഓരോ ജില്ലയിലും വാക്സിൻ നൽകുന്നതിന്റെ ആസൂത്രണം കാര്യക്ഷമമാണെന്ന് ഉറപ്പു വരുത്താനാണ് രണ്ടാം ഡ്രൈ റൺ സംഘടിപ്പിക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു രാജ്യത്ത് കോവിഡ് വാക്സിൻ നൽകുന്നതിന് ഗവൺമെന്റ് നടപടി ഊർജിതമാക്കിയതായും മന്ത്രാലയം വെളിപ്പെടുത്തി സംസ്ഥാനങ്ങളിലേയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലേയും ആരോഗ്യ മന്ത്രിമാരുമായി ഡ്രൈ റൺ നടത്തുന്നത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രി ഡോ ഹർഷ് വർധൻ ഇന്ന് ഓൺലൈൻ വഴി കൂടിക്കാഴ്ച നടത്തും വാക്സിൻ കുത്തിവയ്പിന് സ്ഥലം കണ്ടെത്തുക വാക്സിനേഷൻ ടീമിനെ ഒരുക്കുക വാക്സിൻ നൽകേണ്ടവരെ കണ്ടെത്തുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ജില്ലാ കലക്ടർമാരുടെ നേതൃത്വത്തിൽ ഡ്രൈ റൺ സമയത്ത് പരീക്ഷിക്കും രണ്ട് കോവിഡ് വാക്സിനുകൾ അടിയന്തര ഘട്ടത്തിൽ നൽകാൻ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഈയിടെ അനുമതി നൽകിയിരുന്നു ദേഴ കോവിഡ് വ്യാപനം വിലയിരുത്താൻ ഉന്നതതല കേന്ദ്ര സംഘം നാളെ സംസ്ഥാനത്തെത്തും

കെ സിങ്ങിന്റെ നേതൃത്വത്തിൽ എത്തുന്ന സംഘം കോവിഡ് രോഗ നിയന്ത്രണത്തിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യും ആവശ്യമായ സഹായങ്ങൾ സംഘം നൽകുമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാജ്യത്ത് ഏറ്റവും അധികം പ്രതിദിന കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ്

രും എറണാകുളം ജില്ലയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം വർധിച്ച സാഹചര്യത്തിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നത് നിരീക്ഷിക്കുന്നതിനായി സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ വീണ്ടും നിയമിച്ചു ആളുകൾ കൂടുതൽ എത്തുന്ന പരിപാടികളിൽ ആയിരിക്കും നിരീക്ഷണം ശക്തിപ്പെടുത്തുന്നത്

രംഭ കണ്ണൂർ ജില്ലയിൽ ഷിഗെല്ല രോഗ ലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോ

രുമ പക്ഷിപ്പനി പ്രതിരോധത്തിന്റെ ഭാഗമായി കോട്ടയം ജില്ലയിലെ നീണ്ടൂരിൽ വളർത്തു പക്ഷികളെ കൊല്ലുന്ന പ്രക്രിയ പൂർത്തിയായി

പ്രദേശത്ത് മൃഗസംരക്ഷണ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ജാഗ്രതാ സംവിധാനം തുടരുമെന്ന് കളക്ടർ എം അജ്ഞന അറിയിച്ചു

മന്ത്രി കെ കെ ശൈലജ ക്ലിനിക്കുകളുടെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു

സമ്പുഷ്ട കേരളം പദ്ധതിയുടെ നിർണായക ചുവടുവയ്പായി ന്യൂട്രീഷ്യൻ ക്ലിനിക്കുകൾ മാറുമെന്ന് മന്ത്രി പറഞ്ഞു രുര രാജ്യരക്ഷാ സഹമന്ത്രി ശ്രീപദ് യശോനായിക് ഒരു ലക്ഷം ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ കരസേനാ മേധാവി ജനറൽ എം

ശത്രുക്കൾക്കെതിരായ പോരാട്ടത്തിൽ സൈനികരുടെ വിലപ്പെട്ട ജീവൻ സംരക്ഷിക്കുന്നതിന് ഗവൺമെന്റ് പ്രതിബദ്ധമാണെന്നും നായിക്ക് പറഞ്ഞു

രും സിഡ്നിയിൽ ഇന്ത്യ ഓസ്ട്രേലിയ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ മഴമൂലം കളി തടസ്സപ്പെട്ടു

അഞ്ച് റൺസെടുത്ത ഡേവിഡ് വാർണറെ മുഹമ്മദ് സിറാജാണ് പുറത്താക്കിയത്

ഓരോ ടെസ്റ്റ് ജയിച്ച് ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം ആയതിനാൽ മൂന്നാം ടെസ്റ്റ് ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും നിർണായകമാണ്

എൽ ഫുട്ബോളിൽ കരുത്തരായ ഗോവ എഫ്

ഗോവയിൽ നടന്ന മത്സരത്തിൽ ഇരു ടീമുകളും ഓരോ ഗോൾ നേടി ഇതോടെ ഗോവ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തേക്കും ഈസ്റ്റ് ബംഗാൾ കേരളാ ബ്ലാസ്റ്റേഴ്സിനെ മറികടന്ന് ഒമ്പതാം സ്ഥാനത്തേക്കും ഉയർന്നു

സിയെ നേരിടും രും കേരളാ മിനറൽസ് ആന്റ് മെറ്റൽസ് ലിമിറ്റഡിൽ ആധുനിക പ്രഷർ ഫിൽറ്ററിന്റേയും സ്പിൻ ഫ്ളാഷ് ഡ്രയറിന്റേയും നിർമാണോദ്ഘാടനം മന്ത്രി ഇ പി ജയരാജൻ കൊല്ലത്ത് നിർവഹിച്ചു

സംസ്ഥാന യുവജന കമ്മീഷന്റെ കൊല്ലം ജില്ലാതല അദാലത്തിലാണ് അവർ ഇക്കാര്യം പറഞ്ഞത് ഓൺലൈൻ ചൂതാട്ടങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവർ തന്നെ വായ്പകൾ നൽകി യുവാക്കളെ ചതിയിൽപെടുത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത്തരം ചൂതാട്ടങ്ങൾ സംഘടിപ്പിക്കുന്ന ഏജൻസികൾക്കെതിരെ അന്വേഷണത്തിന് സംസ്ഥാന പൊലീസ് മേധാവിക്ക് കമ്മീഷൻ ശുപാർശ നൽകിയിട്ടുണ്ടെന്നും അവർ അറിയിച്ചു

രംഭ സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ സ്പീക്കറുടെ അനുമതി ആവശ്യമാണെന്ന് കാണിച്ച് നിയമസഭാ സെക്രട്ടറി കസ്റ്റംസിന് കത്ത് നൽകി സ്വർണക്കടത്ത് അന്വേഷിക്കുന്ന കസ്റ്റംസ് സംഘം സ്പീക്കറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അയ്യപ്പനോട് ചോദ്യം ചെയ്യല്ലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് വീണ്ടും നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് നിയമസഭാ ഭരണഘടനാപരമായ പരിരക്ഷ ഇത്തരം സാഹചര്യങ്ങളിൽ അയ്യപ്പന് ഉണ്ടെന്ന ചട്ടം വിശദീകരിച്ചു കൊണ്ട് നിയമസഭാ സെക്രട്ടറി കസ്റ്റംസിന് കത്ത് നൽകിയത് രംഭ വിദ്യാർഥികളിലെ പരീക്ഷാ ആശങ്കകൾ ദൂരീകരിക്കാനും മാനസിക സംഘർഷം കുറച്ച് വിജയ ശതമാനം വർധിപ്പിക്കാനുമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആശങ്ക വേണ്ട അരികിലുണ്ട് എന്ന പദ്ധതി നടപ്പാക്കും

രംഭ വയനാട് ജില്ലയിലെ റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പരിശോധനകൾ കാര്യക്ഷമമാക്കാൻ മൂന്ന് ഇലക്ട്രിക് കാറുകൾ കൂടി മോട്ടോർ വാഹന വകുപ്പ് നിരത്തിലിറക്കി എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിനായി പുതിയതായി അനുവദിച്ച ഇലക്ട്രിക് കാറുകൾ ജില്ലാ കലക്ടർ ഡോ

രും ഇടുക്കി ജില്ലയിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗങ്ങളെ കൂടുതലായി കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കുന്നതിന് ഹരിത രശ്മി എന്ന പേരിൽ പദ്ധതി നടപ്പാക്കുന്നു ഇവരുടെ ജീവിത നിലവാരത്തിലും വരുമാനത്തിലും പുരോഗതി ഉറപ്പുവരുത്തുന്നതിനാണ് പട്ടികവർഗ വികസന വകുപ്പ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്